സംസ്ഥാന ഗവ ജീവനക്കാരുടെ ഒരുമാസത്തെ ശമ്പളം പ്രള യദുരിതാശാസത്തിന് സംഭാവനയായി ഈടാക്കുന്ന കാര്യ ത്തിൽ സംഘടനാപ്രതിനിധികളുമായി ഇന്ന് ചർച്ച കുട്ട നാട്ടിൽ ജന ജീ വിതം സാധാര്ണ നിലയിലേക്ക് എത്തുന്നു പൊതുഗതാഗത സംവിധാനങ്ങളെ ബന്ധിപ്പിച്ച് ഒരു രാജ്യം ഒരു കാർഡ് പദ്ധതി വൈകാതെ ആരംഭിക്കുമെന്ന് നിതി ആയോഗ് പെരുമ്പാവൂരില്ലെ വൃവസായിലെ തട്ടിക്കൊണ്ടുപോയ സംഘ ത്തിൽ പ്പെട്ട മൂന്ന് പേരെ കണ്ണൂരിൽ അറസ്റ്റ് ചെയ്തു സംസ്ഥാനത്ത് എലിപ്പനി നിയന്ത്രണവിധേയമാണെന്നും ഭീതി ജനകമായ സാഹചര്യമില്ലെന്നും മന്ത്രി കെ കെ ശൈലജ വ്യക്തമാക്കി കോഴിക്കോട് കലക്ടറേറ്റിൽ ആരോഗ്യവകുപ്പ് ഉദ്യോ ഗസ്ഥരുടെ ്അടിയന്തര യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രോഗത്തിന് കാരണമായ ബാക്ടീരിയക്ക് നനഞ്ഞ മണ്ണിൽ കഴിയാൻ സാധിക്കുന്നിനാൽ മൂന്നാഴ്ച കൂടി അതീവജാഗ്രത തുട രണം പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കുക യായണ് ഏറ്റവും പ്രധാനമെന്നും പ്രതിരോധ മരുന്ന് ആവശ്യത്തി നുണ്ടെന്നും മന്ത്രി അറിയിച്ചു എലിപ്പനി ലക്ഷണങ്ങളുമായി ചികിത്സക്കെത്തുന്നവരെ വിശ ദമായി പരിശോധിച്ച് അടിയന്തര ചികിത്സ ലഭൃമാക്കാൻ മന്ത്രി ഡോക്ടർമാർക്ക് നിർദേശം നൽകി എല്ലാ ആശുപത്രികളിലും മരുന്ന് ഉറപ്പുവരുത്തണമെന്നും താലൂക്ക് ആശുപത്രിയിൽ തന്നെ ഡോക്സികോർണർ ഉണ്ടാകണമെന്നും മന്ത്രി നിർദേശിച്ചു പത്തനംതിട്ട ജില്ലയിൽ എലിപ്പനി ബാധിച്ച് രണ്ട് പേർ മരിച്ചു മരിച്ച രണ്ട് പേരും പ്രളയബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്ത കരാണ് ജില്ലയിൽ എട്ട് പേർക്ക് കൂടി എലിപ്പനിയും മൂന്ന് പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ എലിപ്പനി ബാധിച്ച് ഇന്നലെ ഒരാൾ മരിച്ചു

ഇതിൽ മുന്ന് പേർക്ക് എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചു

കോഴിക്കോട് ജില്ലയിൽ പനി ബാധിച്ച് മരിച്ച മൂന്ന് പേരിൽ ഒരാ ളുടേത് കൂടി എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചു

സംസ്ഥാനത്ത് എലിപ്പനി മരണങ്ങൾ വർധിക്കുന്ന സാഹചര്യ ത്തിൽ പ്രളയബാധിത ജില്ലകളിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക മെഡി ക്കൽ സംഘത്തെ നിയോഗിക്കണമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു വീടുകൾ ശുചീകരിക്കുന്നവർക്ക് അടക്കം ആരോഗ്യ സുരക്ഷാ ഉപകരണങ്ങൾ അടിയന്തിരമായി നൽകണമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർദേശിച്ചു സംസ്ഥാന ഗവ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം പ്രളയ ദുരിതാശ്ചാസത്തിന് സംഭാവനയായി ഈടാക്കുന്ന കാര്യത്തിൽ സംഘടനാപ്രതിനിധികളുമായി മന്ത്രി ഡോ തോമസ്ഐസക് ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്തും ഒരു മാസം മൂന്ന് ദിവസത്തെ ശമ്പളം വീതം പത്ത് മാസമായി തുക ഈടാക്കാനാണ് ഗവ ഉദ്ദേ ശിക്കുന്നത് എന്നാൽ ഇത് നിർബന്ധമാക്കരുതെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിന്റെ പുനർനിർമാണത്തിന് മുപ്പതിനായിരം കോടി രൂപ വേണ്ടിവരുമെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് ആലപ്പുഴയിൽ അറിയിച്ചു

ഉപജീവനസഹായത്തിനായി പതിനായിരം ക്രോടി വേണ്ടിവരു മെന്നും മന്ത്രി പറഞ്ഞു പ്രളയബാധിത പ്രദേശങ്ങളിലെ ജനുങ്ങളുടെ പുനരധിവാസം സമഗ്രമായ കാഴ്ചപ്പാടോടെ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു ആറൻമുള എഴിക്കാട് കോളനി യിലെ പ്രളയ പ്രദേശങ്ങൾ നേരിൽ ക്ണ്ടശേഷം സംസാരിക്കുക യായിരുന്നു അദ്ദേഹം പ്രളയ ദുരിതത്തിൽ ന്ാട് പകച്ചു നിന്നപ്പോൾ പതർച്ചയില്ലാതെ സാഹസികമായി പ്രവർത്തിച്ചത് മത്സൃത്തൊഴിലാളികളാണെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു യഥാർത്ഥ രക്ഷകർ അവരാണെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് പൌരാവലി സംഘ ടിപ്പിച്ച സ്നേഹാദരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം കോഴിക്കോട് ജില്ലയിൽ നിന്ന് മറ്റു ജില്ലകലിൽ പോയി രക്ഷാ പ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികളെ ബിജെപിയും ഇന്നലെ ആദരിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപി ളള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുട്ടനാട്ടിൽ ജനജീവിതം സാധാരണനിലയിലേക്ക് എത്തിത്തു ടങ്ങി താഴ്ന്ന പ്രദേശങ്ങളായി കൈനകരി നെടുമുടി എന്നിവടങ്ങ ളിൽ ആയിരത്തോളം പേർ മാത്രമാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് വെളളക്കെട്ടു മേഖലയിൽ ബോട്ടിൽ റേഷൻ സാധനങ്ങൾ ഇന്നു മുതൽ വിതർണം ചെയ്യും കെപിസിസി സംഘ ടിപ്പിച്ച ശുചീകരണ യജ്ഞത്തിന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തലയും നേതൃത്വം നൽകി

പാലക്കാട് ജില്ലയിലെ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം രണ്ടായി കുറഞ്ഞു

കോഴിക്കോട് ജില്ലയിലെ സ്ഥകാര്യ ബസ്സുകൾ ഇന്നലെ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയി ലേക്ക് സമാഹരിച്ചു

കൊല്ലം ജില്ലയിലെ സ്ഥകാര്യ ബസ്സുകളും ഇന്നലെ കാരുണ്യ യാത്ര സംഘടിപ്പിച്ചു

മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് ഇടുക്കി ജില്ല യിൽ നിന്ന് ധനസമാഹരണം നടത്തുന്നതിനെ പറ്റി മന്ത്രി എം എം മണിയുടെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റിൽ ഇന്ന് യോഗം ചേരും നവകേരള ഭാഗ്യക്കുറിയുടെ ഇടുക്കി ജില്ലാതല പ്രകാശനവും ഉച്ചകഴിഞ്ഞ് മന്ത്രി എം എം മണി നടത്തും അടിമാലി പൊലീസ് കാന്റീൻ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച ഒന്നരലക്ഷം രൂപയുടെ ചെക്ക് രാവിലെ മന്ത്രിക്ക് കൈമാറും

നവകേരള ലോട്ടറി വൻ വിജയമാക്കാൻ എല്ലാവരും കൂട്ടായി ശ്രമിക്കണമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാസർകോട്ട് പറഞ്ഞു കാഞ്ഞങ്ങാട്ട് നവകേരള ലോട്ടറി ടിക്കറ്റിന്റെ ജില്ലാതല പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രളയത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തുന്നവരുടെ പോഷക സുരക്ഷക്കായി കൊല്ലം ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പ് കോഴി മുട്ട വിതരണം തുടങ്ങി സ്കൂൾ കുട്ടികൾക്ക് ഒരുലക്ഷം മുട്ട നൽകുന്ന പദ്ധതി മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാകും

ഇപ്പോൾ ഒരു ഷട്ടറിൽ കൂടി സെക്കന്റിൽ നൂറ് ഘനഅടി വെളളം മാത്രമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് പ്രളയത്തിൽ നഷ്ടപ്പെട്ട ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുക ളിലെ പാഠപുസ്തകങ്ങൾ ഇന്നു മുതൽ വിതരണം ചെയ്യും ഇതി നായി പുസ്തകങ്ങൾ കേരള ബുക്സ് ആന്റ് പബ്ലിക്കേഷൻസ് സൊസൈറ്റിയിൽ നിന്ന് ഡിപ്പോകളിലേക്ക് എത്തിച്ചു ഈ അധ്യ യന വർഷത്തെടർണ്ടാം വാള്യം പുസ്തകങ്ങളും ഇതോടൊപ്പം നൽകും സംസ്ഥാനം ദുരന്തമുഖത്തുനിൽക്കുമ്പോൾ ചുമതല കൈമാ റാതെ മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സക്ക് പോയത് ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് കാരൃങ്ങൾ എത്തിക്കാവുന്ന ഗുരുതര വീഴ്ച യാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപി ളള പറഞ്ഞു മറ്റ് മന്ത്രിമാർക്ക് ചുമതല കൈമാറുന്നതിൽ സിപി ഐഎമ്മിലും എൽഡിഎഫിലും കടുത്ത ആഭ്യന്തര പ്രതിസന്ധി യുണ്ടോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു പൊതു ഗതാഗത സംവിധാനങ്ങളെ ബന്ധിപ്പിച്ച് ഒരു രാജ്യം ഒരു കാർഡ് പദ്ധതി വൈകാതെ ആരംഭിക്കുമെന്ന് നിതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിതാബ്കാന്ത് അറിയിച്ചു

തിരുവനന്തപുരം ഡിവിഷനിലെ എട്ട് പാസഞ്ചൂർ ട്രെയിനുകൾ പൂർണമായും ചിലത് ഭാഗികമായും ഇന്ന് സർവ്വീസ് റദ്ദാക്കി ഗുരു വായൂർ തൃശൂർ കൊല്ലം പുനലൂർ എറണാകുളം കായംകുളം പാസഞ്ചറുകളാണ് റദ്ദാക്കിയത്

പെരുമ്പാവൂർ സ്വദേശിയായ വൃവ്സായിയെ തട്ടിക്കൊണ്ടുപോയി കൊളളയടിച്ച സംഘത്തിലെ മൂന്ന് പേരെ കണ്ണൂരിൽ പൊലീസ് അറസ്റ്റ് ചെയ്തു

കർണാടക ന്ഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്ക്ഷിയായി

അന്തരീക്ഷ ഊഷ്മാവ് മഴ ആർദ്രത എന്നിവ അളക്കുന്ന ഉപകരണങ്ങളാണ് സ്ഥാപിക്കു ന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന ഖജാൻജിയായി സ്പി ടി അഹമ്മദ് അലിയെ സംസ്ഥാന പ്രസിഡന്റ് നാമനിർദേശം ചെയ്തു മുൻമന്ത്രി കൂടിയായ സി ടി അഹമ്മദ്അലി ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയില്ലെ കാരുണ്യ ഫാർമസിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നു പുരാതിയിൽ മൂന്ന് ഫാർമ സിസ്റ്റുകൾക്കെതിരെ വിജിലൻസ് കേസെടുത്തു

കാസർകോട്ട് ജില്ലയിൽ സ്ഥകാര്യ മേഖലയിലെ ഒഴിവുകളി ലേക്ക് ഒറ്റത്തവണ് രജിസ്ട്രേഷനും തൊഴിൽ പരിശീലനവും നൽകുന്ന എംപ്ലോയബിലിറ്റി കേന്ദ്രം പ്രവർത്തനം തുടങ്ങി